പരാതി പൂർണ്ണമായും അടിസ്ഥാന രഹിതമാണെന്ന് അറിയിച്ച ചീഫ് ജസ്റ്റിസ് നിയമവ്യവസ്ഥയുടെ സാതന്ത്ര്യം അങ്ങേ യറ്റം ഗുരു ത ര മായ വെ ല്ലു വിളി നേരിടുകയാണെന്ന് അഭിപ്രായപ്പെട്ടു

ഇത്തരം ഒരു ആരോപണത്തിന് മറുപടി പറയുന്നത് പോലും തന്റെ പദവിക്ക് അപമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പണം കൊണ്ട് സാധീനിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായതെന്ന് ചീഫ് ജസ്റ്റിസ് പറ ഞ്ഞു

ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായ ബെഞ്ച് കൂടുതൽ വിപുലമായ ബെഞ്ച് കേസ് പരിഗണിക്കട്ടെയെന്ന തീരുമാനത്തോടെ ഉത്തരവ് പുറപ്പെടുവിക്കാതെ പിരിഞ്ഞു ക്കൽക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാംഘട്ട വോട്ടെടുപ്പ് പ്രചാരണത്തിന് നാളെ കലാശക്കൊട്ട്

അവസാ നവട്ട പ്രചാരണത്തിനായി മുന്നണികളുടെയും പാർട്ടികളു ടെയും ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് ഇന്നും നാളെയും സന്ദർശനം നടത്തും പരസ്യപ്രചാരണ സമാപനത്തിന് മണി ക്കൂറുകൾ ബാക്കി നിൽക്കെ വോട്ട് അഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥികൾ തിരക്കിട്ട പ്രചാരണത്തിലാണ് വയനാട്ടിലെ പ്രചാരണത്തിന് എ ഐ

പ്രതികൂല കാലാവസ്ഥ കാരണം വിമാനം വൈകിയതിനാൽ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വി

പുൽപ്പള്ളിയിലെ കർഷ ക സം ഗ മ ത്തിലും നിലമ്പൂരിലെയും അരീക്കോട്ടെയും പൊതുയോഗങ്ങളിലും പ്രിയങ്ക പങ്കെടുക്കും

ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബി

പി അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് പത്തനംതിട്ടയിലെത്തും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കണ്ണൂരിൽ എൽ

മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലയിൽ പ്രചാരണത്തിനെത്തും വയനാട്ടിലെ എൻ

എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നാളെയെത്തും രാവിലെ ബത്തേരി സെന്റ് മേരീസ് കോളജ് ഗ്രൌണ്ടിലെത്തുന്ന അവർ ഗാന്ധി ജംഗ്ഷനിലെ പൊതുയോഗത്തിൽ പങ്കെടുത്തശേഷം ബത്തേരിയിലെ റോഡ്ഷോയിലും പങ്കെടുക്കും

വിശദമായ അന്വേഷണം നടത്താൻ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്ന് ഉത്തരമേഖലാ ഐ ജി പൊലീസ് മേധാവിയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു

ഡറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഗവൺമെന്റ് പറ യു ന്നത് അനു സ രിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നയാളാണ്

ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അധി ക്ഷേപ പരാമർശം നടത്തിയ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവന് എതിരെ കേസ് എടുക്കാത്തത് തെറ്റായ നട പടിയാണ് ഇക്കാര്യത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അപ കീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടതി ല്ലെന്ന് ഡറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിർദ്ദേശം നൽകി അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തിയി ട്ടില്ലെന്ന് അന്വേഷണം നടത്തിയ മലപ്പുറം എസ് പി തൃശൂർ റേയ്ഞ്ച് ഐജിക്ക് റിപ്പോർട്ട് നൽകി രാഷ്ട്രീയ അന്ത രീക്ഷം പൂർണ്ണമായും യു ഡി എഫ് അനുകൂലമാണെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭരണം യു ഡി എഫിന് അവസരം ഒരുക്കിയെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു

അലീലിന്റെ കൊലപാതകികൾക്ക് മാപ്പില്ല തെരഞ്ഞെടുപ്പ് ബഹിഷ്ക്കരി ക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായി ചെവിടിക്കുന്നിലെ വാട ക്കെട്ടിടത്തിലാണ് പോസ്റ്ററുകൾ പതിച്ചത് ഇതേ തുടർന്ന് മാവോയിസ്റ്റ് മേഖലകളിൽ പൊലീസ് നിരീക്ഷണം ശക്ത മാക്കി

വിവിപാറ്റ് യന്ത്രത്തിലെ വോട്ട് രശീതി സൂക്ഷിക്കുന്ന കവറുകളും പ്രത്യേക പ്ലാസ്റ്റിക് കൂടുകളും ഇത്തവണ കിറ്റിലുണ്ടാകും വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഒഴികെ എല്ലാ സാധനങ്ങളും നാളെ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും

ഇതിന്റെ ഭാഗമായി വൈകീട്ട് മാനാഞ്ചിറ സ്ക്യറിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും

സംസ്ഥാന ജില്ലാ തല ങ്ങളിൽ എം

സി അംഗീകാരമില്ലാതെ പരസ്യങ്ങൾ പ്രസി ദ്ധീകരിക്കാൻ പാടില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു സ്ഥാനാർത്ഥി കൾക്കും പാർട്ടികൾക്കും പുറമെ വൃക്തികൾക്കും സംഘടന കൾക്കും നിർദ്ദേശം ബാധകമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാ ബുമായും ഏറ്റുമുട്ടും

സർവീസസ് ഷൂട്ടൌട്ടിലാണ് കർണാടകയെ മറി കടന്നത്

ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്

അപകടത്തെ തുടർന്ന് റദ്ദാക്കിയ സർവീസു കൾ വൈകുന്നേരത്തോടെ പുനഃരാരംഭിക്കും ഏതാനും ട്രെയിനുകൾ വഴി തിരിച്ചു വിട്ടതായും റെയിൽവേ അറിയിച്ചു മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നട അടച്ചു

കരിപ്പൂരിൽ നിന്ന് ഗൾഫിലേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങളിലാണ് നിരക്കു വർദ്ധന

മധ്യവേനൽ അവധി തുടങ്ങിയശേഷം ഏറ്റവും പ്രവിശധികം സഞ്ചാരികളെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാണ്